ലോകബാഡ്മിന്റൺ ചാമ്പൃൻ പി

നാളെ കേരളം ആദരിക്കും

സംസ്ഥാന കായിക വകുപ്പും കേരള ഒളിമ്പിക്സ് അസോസിയേഷനും ചേർന്നാണ് സിന്ധുവിന് കേരളത്തിൽ സ്വീകരണം ഒരുക്കുന്നത് ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തുന്ന പി

കേരള ഒളിമ്പിക് എന്ന യൂ ട്യൂബ് ചാനൽ പി